കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജമ്മുവിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നു

അമേരിക്കയുമായുള്ള ആണവായുധ നിയന്ത്രണ കരാർ റഷ്യ റദ്ദാക്കി

ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് നാഗ്പൂരിൽ

അവർ നമുക്ക് ഭക്ഷണവും സുരക്ഷയും നൽകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ മത സാംസ്കാരിക സാമൂഹിക സ്ഥാപനങ്ങൾക്ക് സാമൂഹിക മാറ്റം സാധ്യമാക്കുന്നതിൽ വലിയ പങ്കുവഹിക്കാനാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗാന്ധിനഗറിലെ അന്നപൂർണ്ണ ധാം ക്ഷേത്രത്തിൽ ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കൂടുതൽ വിവരങ്ങളുമായി കരോൾ എബ്രഹ്ഗാം വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി അന്നപൂർണ്ണ ധാമിനെ പോലെയുള്ള മതകേന്ദ്രങ്ങൾ മാറുന്നതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു സ്ത്രീപുരുഷ സമത്യം പുരോഗതി എന്നിവ ഉറപ്പാക്കാനുള്ള ശക്തി സമൂഹത്തിന് പകർന്നു നിൽകാൻ അന്നപൂർണ്ണ ധാം ശ്രദ്ധിക്കണം ഭക്ഷ്യ സംസ്കരണ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം ഗുജറാത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഭക്ഷ്യ സംസ്കരണ പ്രവർത്തനങ്ങൾ രാജ്യത്തെ കർഷകർക്കും വൃവസായങ്ങൾക്കും ഒരുപോലെ ഗുണകരമാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള നേതാക്കൾ ഏതെങ്കിലും ജാതിയുടെയോ സമൂഹത്തിന്റെയോ പേരിൽ മാത്രം അറിയപ്പെടേണ്ടവരല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അന്നൂപൂർണ്ണ ദേവിക്ക് പ്രധാനമന്ത്രി പ്രാണ പ്രതിഷ്ഠ നടത്തി വിദ്യാർത്ഥി ഭവന്റെയും ശിക്ഷൻ ഭവന്റെയും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവ്വഹിച്ചു അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായുള്ള പ്രധാൻമന്ത്രി ശ്രം യോഗി മൻധൻ പദ്ധതിയുടെ ഉദ്ഘാടനം അദ്ദേഹം ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് നിർവ്വഹിക്കും ഫെബ്രുവരിയിലെ ഇടക്കാല ബജറ്റിലാണ് ഈ പദ്ധതി സംബന്ധിച്ചു പ്രഖ്യാപനം ഉണ്ടായത്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

വെങ്കയ്യനായിഡുവിന്റെ സന്ദർശനം ആരംഭിച്ചു എട്ട് ദിവസത്തെ സന്ദർശനത്തിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷിതല ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം പരാഗ്വേ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ഉപ്പർാഷ്ട്രപതിയാണ് ശ്രീ

പരാഗ്വേയുടെ പ്രസിഡ്ന്റ് മാരിയോ അബ്ദോ ബെനിറ്റെസുമായി ഉപരാഷ്ട്രപ്പതി കൂടിക്കാഴ്ച നടത്തും പരാഗ്വേയിലെ വ്യാപാര സ്ക്മൂഹ്വുമായി വ്യവസായ നിക്ഷേപക സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം ചർച്ച നടത്തും

സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം ശൈത്യകാല തലസ്ഥാനമായ ജമ്മുവിൽ എത്തുന്ന സംഘം ചീഫ് സെക്രട്ടറി ബി

സുബ്രഹ്മണ്യം സംസ്ഥാന പോലീസ് മേധാവി ദിൽബാഗ് സിംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും

സംസ്ഥാനത്തെ ഷോപ്പിയാൻ ജില്ലയിലെ നർവാവ് മേഖലയിൽ സേനയുടെ സംയുക്ത സംഘം ഇന്ന് രാവിലെ തെരച്ചിൽ നടത്തിയിരുന്നു ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് തെരച്ചിൽ നടത്തിയതെന്ന് സുരക്ഷാസേന വൃത്തങ്ങൾ വ്യക്തമാക്കി

ഡെറാഡൂണിൽ ഇന്നലെ നടന്ന ശൌരൃ സമ്മാൻ സമാരോഹ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ

വീരമൃത്യു വരിച്ച സൈനികരുടെ ഭാര്യമാരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത ദേശീയ യുദ്ധ സ്മാരകം വീരമൃത്യു വരിച്ച സൈനികരുടെ ഓർമ്മ നിലനിർത്താനാണെന്ന് ശ്രീമതി

അസമിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ജില്ലയായ ദുബ്രിയിലാണ് പദ്ധതിയുടെ ഉദ്ഘാടനം ബംഗ്ലാദേശുമായുള്ള നാലായിരം കിലോമീറ്റർ അന്തർദ്ദേശീയ അതിർത്തി അതിർത്തി സുരക്ഷാ സേനയാണ് സംരക്ഷിക്കുന്നത്

ശീതയുദ്ധകാലത്തെ ഈ സുപ്രധാന കരാർ റദ്ദാക്കുന്ന ഉടമ്പടിയിൽ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ഒപ്പുവച്ചതായി റഷ്യൻ വൃത്തങ്ങൾ അറിയിച്ചു

ആറും അമേരിക്കയും തമ്മിൽ ഒപ്പുവയ്ക്കപ്പെട്ട കരാർ വ്യവസ്ഥകളിൽ നിന്ന് അമേരിക്ക വൃതിചലിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനമെന്ന് ക്രെംലിൻ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു നേരത്തെ കരാറിൽ നിന്ന് ആറ് മാസത്തിനകം അമേരിക്ക പിൻമാറുമെന്ന് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു

പൊതുമേഖലാ സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള എല്ലാ വായ്പകൾക്കും ഇത് ബ്രാധകമാണെന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗത്തിനുശേഷം മൂഖ്യമ്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

കടാശ്വാസ കമ്മീഷൻ നിശ്ചയിക്കുന്ന വായ്പയുടെ പരിധി ഒരു ലക്ഷത്തിൽ നിന്ന് രണ്ടുലക്ഷമാക്കി വർദ്ധിപ്പിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു

കാർഷിക കടാശ്വാസ കമ്മീഷൻ പരിധിയിൽ വാണിജ്യ ബാങ്കുകളുടെകൂടി ഉൾപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു നവകേരള നിർമ്മാണത്തിന് ലോകബാങ്ക് വായ്പ എടുക്കാനുള്ള നിർദ്ദേശത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി

ജൂൺ ജൂലൈ മാസത്തോടെ വായ്പ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ഇന്നലെ തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ ധർമ്മപുരിയും മൊറാപ്പൂരിനുമിടയ്ക്കുള്ള പുതിയ റെയിൽപാതയുടെ ശിലാസ്ഥാപനം മന്ത്രി നിർവ്വഹിച്ചു ആധുനിക രീതിയിലുള്ള കോച്ചുകൾ ഇറക്കുമതി ചെയ്യുന്നത് പഴയ രീതിയാണെന്നും അത്തരം കോച്ചുകൾ എന്നതാണ് പുതിയ നയമെന്നും അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു ചെന്നൈയിൽ നിന്ന് തിരുനെൽവേലി വരെ സർവ്വീസ് നടത്തിയിരുന്ന അന്ത്യോദ്യിട്ട് എക്സ്പ്രസ് നാഗർകോവിൽ വരെ നീട്ടിയതും ശ്രീ ഗോയൽ ഫ്ളോഗ് ഓഫ് ചെയ്തു

രാജ്യത്തെ കാണ്ഡഹാർ ഹെൽമന്ദ് പ്രവിശ്യകളെയാണ് പ്രളയം കൂടുതലായി ബാധിച്ചത്

രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായി പ്രളയത്തിൽ കുടുങ്ങിയ നൂറിലേറെ പേരെ രക്ഷിക്കാൻ സാധിച്ചെന്നും അവരെ താൽക്കാലിക ക്യാമ്പുകളിൽ സുരക്ഷാസേനയുടെ സഹായത്തോടെ എത്തിച്ചിട്ടുണ്ടെന്നും ഔദ്യോഗിക വക്താവ് അറിയിച്ചു

മുങ്ങിത്താഴുകയായിരുന്ന മൽസ്യബന്ധന ബോട്ടിൽ നിന്നാണ് ഇവരെ നാവികസേന രക്ഷപ്പെടുത്തിയതെന്ന് പ്രതിരോധവക്താവ് അറിയിച്ചു

മേഖലയിൽ പട്രോളിങ് നടത്തുകയായിരുന്ന നാവിക്സേന ബോട്ടിലുണ്ടായിരുന്നവരെ കണ്ടെത്തുകയായിരുന്നു കാസർകോട്ട് നിന്നുള്ളവരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിലെ ആഴക്കടലുകളിൽ ഉണ്ടാകുന്ന അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വിന്യസിച്ചിട്ടുള്ള ഐ

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവയ്ക്കാണ് നിർദ്ദേശം നൽകിയത് കഴിയുമെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ യോഗം വിളിച്ച് ചേർക്കണമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ അദ്ധ്യക്ഷൻ ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയൽ അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു പ്ലാസ്റ്റിക് നിർമ്മിത പ്രചരണ വസ്തുക്കൾ പ്രകൃതിക്ക് നാശം വിതയ്ക്കുന്നതായി ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം

ആദ്യ കളിയിൽ ജയിച്ച ആത്മവിശ്വാസവുമായാണ് ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുന്നത് ആകെ അഞ്ച് മത്സരങ്ങളാണ് പ്രെമ്പരയിൽ ഉളളത്